മൂന്ന് ഭീകരരെയും വധിച്ചു

ങ്ങ ൽ റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട സി എ ജി റിപ്പോർട്ട് എന്നാണ് പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ചതെന്ന് ആരായാൻ നടപടിയുണ്ടാകുമെന്ന് പാർലമെന്റ് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു ഇതിനായി അറ്റോർണി ജനറലിനെയും കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറ ലിനെയും വിളിച്ചു വരുത്താൻ പി എ സി അംഗങ്ങളോട് അഭ്യർത്ഥി ക്കുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു റഫേൽ ഇടപാ ടിൽ സി എ ജി റിപ്പോർട്ട് പാർലമെന്റിന് നൽകിയെന്ന തെറ്റായ വിവരം സുപ്രീംകോടതിയിൽ ഗവ നൽകിയ്തായി ഖാർഗെ കുറ്റ പ്പെടുത്തി ഇടപാടിലെ അഴിമതി അന്വേഷിക്കാൻ പാർലമെന്ററി സംയു ക്തസമിതിക്കേ കഴിയൂവെന്നും സുപ്രീംകോടതി അന്വേഷണ ഏജൻസിയല്ലെന്നും പി എ സി ചെയർമാൻ പറഞ്ഞു സി എ ജി റിപ്പോർട്ട് പിഎസിക്ക് നൽകിയെന്ന് വെളിപ്പെടുത്തലിന്റെ അടി സ്ഥാനത്തിലാണ് സുപ്രീംകോടതി വിധിയുണ്ടായതെന്നും ഖാർഗെ വിലയിരുത്തി ഹർത്താൽ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സമ വായം വേണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടി യേരി ബാലകൃഷ്ണൻ പറഞ്ഞു

കേരളത്തിൽ കലാ പമുണ്ടാക്കാനും അതുവഴി സംസ്ഥാന ഗവൺമെന്റിനെ അസ്ഥി രപ്പെടുത്താനുമാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ഡൽഹിയിൽ കുറ്റപ്പെടുത്തി കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ ചേരും ലോക്സഭാ തെരഞ്ഞെ ടുപ്പ് ഒരുക്കങ്ങളും വനിതാ മതിലിന് എതിരായ പ്രചാരണ പ്രവർത്തനങ്ങളും ശബരിമല പ്രശ്നവും യോഗം ചർച്ച ചെയ്തേ ക്കും ഇതിന് മുന്നോടിയായി ഡിസിസി പ്രസിഡന്റുമാരുടേയും ലോക്സഭാ മണ്ഡലങ്ങളുടേയും ജില്ലകളുടേയും ചുമതലക്കാരായ നേതാക്കളുടെ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി

സമാകാലിക രാഷ്ട്രീയ സംഭവങ്ങളും ഭാവി പ്രക്ഷോഭങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യാനാണ് യോഗം നാളെ വൈകീട്ട് സമാപിക്കും മിസോറാം മുഖ്യമന്ത്രിയായി മിസോ നാഷണൽ ഫ്രണ്ട് നേതാവ് സോറാം താങ്കെ അൽപസ്മയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും

ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിക്കും

രഹസ്യവിവരത്തെ തുടർന്ന് മേഖലയിൽ പരിശോധന നടത്തുകയായിരുന്ന സുരക്ഷാ സേനക്ക് നേരെ ഭീകരർ വെടിയുതിർത്തതിനെ തുടർന്നാണ് സേന തിരിച്ചടിച്ചത് മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് ന രാജ്യത്തെ ആദ്യ റെയിൽവേ സർവകലാശാല ഇന്ന് നാടിന് സമർപ്പിക്കും ഗുജറാത്തിലെ വഡോദരയിലാണ് നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം തുടങ്ങുന്നത്

റഷ്യയിലും ചൈനയിലുമാണ് റെയിൽവേ സർവകലാശാലകൾ ഉള്ളത്

സംഭവത്തിൽ പൊലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം കഴിച്ചവർക്കാണ് വിഷബാധയേറ്റത് നിരവധി പേർ ചികി ത്സയിലാണ് ദേശീയ സാംപിൾ സർവേ ഓഫീസിന്റെ നേതൃത്വത്തിൽ അടുത്ത വർഷം രണ്ട് സുപ്രധാന സർവേകൾ നടത്തും

സംസ്ഥാനത്ത് ബ്രൂവറികൾക്ക് അനുമതി നൽകുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഇതുസംബന്ധിച്ച ഉദ്യോഗസ്ഥ സമിതിയുടെ റിപ്പോർട്ട് ഗവൺമെൻറ് പരിശോധിച്ചുവരികയാണ് റിപ്പോർട്ടി ന്മേൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി സ്വകാര്യ ചാനലിനോട് പറഞ്ഞു ബീവറജേസ് വഴി വിൽക്കുന്ന വിദേശമദൃത്തിന്റെ വില പുനർനിശ്ചയിക്കുമെന്നും മന്ത്രി വൃക്തമാക്കി

രണ്ടാം ദിനം മറുപടി ബാറ്റിംഗ് ആരം ഭിച്ച ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ രണ്ട് ഓപ്പണർമാരെയും നഷ്ടമായി

നാല് വിക്കറ്റെടുത്ത ഇശാന്ത് ശർമ്മയാണ് ഓസീ സിനെ തകർത്തത്

സിന്ധു ലോക ടൂർ ഫൈനൽസ് ബാഡ്മിന്റൺ ഫൈനലിൽ കടന്നു ബീജിംഗിലെ സെമിയിൽ തായ്ലന്റ് താരത്തെയാണ് സിന്ധു തോൽപ്പിച്ചത് നാളെ ഫൈന ലിൽ സിന്ധു ജാപ്പനീസ് താരം ഒക്കുഹാരയെ നേരിടും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ്സി ഡൽഹി ഡയർ ഡെവിൾസിനെ നേരിടും

ഐ ലീഗ് ഫുട്ബോളിൽ കോഴിക്കോട്ട് ഇന്ന് ഗോകുലം കേരള എഫ്സി റിയൽ കശ്മീർ എഫ്സിയുമായി ഏറ്റുമുട്ടും കോർപ്പ റേഷൻ ഇഎംഎസ് സ്റ്റേഡിയത്തിൽ വൈകീട്ട് അഞ്ചിനാണ് മത്സ രം

പാലക്കാട് പെരുവെമ്പിൽ കുടുംബശ്രീ സ് കൂളിന്റെ രണ്ടാം ഘട്ടം ഉദ് ഘാടനം ചെയ് തു സംസാരിക്കുകയായിരുന്നു മന്ത്രി വിവിധ വിഷയങ്ങളിൽ സാമൂഹ്യ അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ സ്കൂൾ കോഴിക്കോട് നിന്ന് പാലക്കാട്ട് മൂന്നര മണിക്കൂർ കൊണ്ട് എത്തുന്ന കെഎസ്ആർടിസിയുടെ രാജധാനി സർവീസിന് ഇന്ന് തുടക്കമാകും ദീർഘദൂര യാത്രക്കാരെ ലക്ഷ്യമിട്ടാണ് സർവീസ് ആരംഭി ക്കുന്നത്

കോഴിക്കോടിനും പാലക്കാടിനും ഇടയിൽ മൂന്ന് സ്റ്റോപ്പുകൾ മാത്രമേ ഉണ്ടാകൂ ആദ്യ ദിനമായ ഇന്ന് ഉച്ചക്ക് രണ്ടിനാണ് സർവീസ് തുടങ്ങുക പാലക്കാട് ജില്ലയിൽ ആറു പഞ്ചായത്തുകളിൽ കാർബൺ ന്യൂട്രൽ പദ്ധതി നടപ്പാക്കും മലമ്പുഴ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന കൊടുമ്പ് മരുതറോഡ് മലമ്പുഴ അകത്തേത്തറ പുതുശ്ശേരി പുതുപ്പരിയാരം പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് സാമൂഹിക വനവത്കരണത്തിലൂടെ അന്തരീക്ഷ ത്തിലെ കാർബൺ അളവിന് തുല്യമായി ഓക്സിജൻ ഉത്പാദനമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്

പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി

പത്മനാഭനാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത് ഈ മാസം മൂന്നിന് ബിജെപി സംസ്ഥാന ജന റൽ സെക്രട്ടറി എ

രാധാകൃഷ്ണനാണ് സത്യഗ്രഹം ആരം ഭിച്ചത് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനെ തുടർന്നാണ് സി കെ പത്മാനാ ഭൻ ഉപവാസം തുടങ്ങിയത്

വാവരുനടയിലെയും വടക്കെ നടയിലെയും ഓരോ ബാരിക്കേ ഡു ക ളാണ് മാറ്റിയത് ഹൈക്കോ ടതി നിർദേശത്തെ തുടർന്നാണ് നടപടിയെന്ന് പൊലീസ് അറിയിച്ചു

തലശ്ശേരി സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത് രാഹുൽ ഈശ്ചറിന്റെ ജാമ്യം റാന്നി കോടതി റദ്ദാക്കി ജാമ്യ വ്യവസ്ഥകൾ പാലിച്ചില്ലെന്ന പേരിലാണ് ജാമൃം റദ്ദാക്കി അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടത് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചു കോഴിക്കോട് ജില്ലാതല പട്ടയമേള മറ്റന്നാൾ നടക്കും ടൌൺഹാളിൽ മന്ത്രി ഇ

ശശീന്ദ്രൻ ചടങ്ങിൽ പട്ടയങ്ങൾ വിത രണം ചെയ്യും മന്ത്രി ടി

രാമകൃഷ്ണൻ ജനപ്രതിനിധികൾ തുട ങ്ങിയവർ പട്ടയമേളയിൽ പങ്കെടുക്കും അമേരിക്കയുടെ ദുരന്ത നിവാരണ സംവിധാ നങ്ങൾ കേരളീയർക്ക് വേണ്ടി പങ്കുവെക്കാൻ തയ്യാറാണെന്ന് യുഎസ് കോൺസുലേറ്റിലെ സാംസ്കാരിക വകുപ്പ് മേധാവി മൌലിക് ബർക്കാനയും സ്പെഷ്യലിസ്റ്റ് ബിജുകുമാറും അറിയിച്ചു കോഴിക്കോട് മലബാർ ചേംബറിൽ ന്ടത്തിയ ചർച്ചയിലാണ് ഇരുവരും ഇക്കാര്യം വ്യക്തമാക്കിയത്

കോട്ടയം അതിരൂപതാ അംഗവും ഏറ്റുമാനൂർ സെന്റ് ജോസഫ് ക്നാനായ കത്തോലിക്കാ ഇടവകാംഗവുമാണ് അദ്ദേഹം

ഫുട്ബോൾ താരം ഐ എം വിജയന്റെ സഹോദരൻ വാഹ നാപകടത്തിൽ മരിച്ചു

സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖൃത്തിൽ നടപ്പിലാക്കുന്ന സർഗ്ഗ വിദ്യാലയം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് പാലക്കാട് വെള്ളിനേഴി ഗവ

പ്രശസ്ത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്യും മന്ത്രി പ്രൊഫ സി രവീന്ദ്രനാഥ് പങ്കെടുക്കും സംസ്ഥാന പിന്നാക്ക വിഭാഗ കോർപ്പറേഷന് പത്ത് പുതിയ ഉപജില്ല ഓഫീസുകൾ ആരംഭിക്കുന്നതിന് ഗവൺമെന്റ് അനുമതി നൽകി